തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മുക്കോല ഭാഗം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും

എൽ ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വിജയം

വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും കഴക്കൂട്ടം മുക്കോല റോഡ് നാടിന് സമർപ്പിക്കും കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ മന്ത്രി ജി സുധാകരൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും

രംഭ എക്സൈസ് വകുപ്പിന്റെ പൂർത്തിയായ നാല് ഓഫീസുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും കാസർകോട് ജില്ലയിലെ ബദിയടുക്ക കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഇടുക്കി ജില്ലയിലെ തങ്കമണി റെയ്ഞ്ച് ഓഫീസുകളും ഉടുമ്പൻചോല സർക്കിൾ ഓഫീസിനുമാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് മന്ത്രി ടി പി രാമകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായിരിക്കും

സംസ്ഥാനത്ത് അൺലോക്ക് നടപടികൾ തുടരുമ്പോഴും പഴയതുപോലെ ആവാൻ ഇപ്പോൾ സാഹചര്യമില്ലെന്നും ജാഗ്രത അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു പാലക്കാട് നെന്മാറ സാമൂഹ്യ ആരോഗ്യകേന്ദ്രം കാഷ്വാലിറ്റി കെട്ടിടം ലേബർ വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രും പാലക്കാട് ജില്ലാ രജിസ്ട്രാർ ഓഫീസ് വ്യാഴാഴ്ച വരെ അടച്ചിട്ടു ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്നാണ് നടപടി

ഇ

രുര കോഴിക്കോട് ജില്ലയിലെ സരോവരം ബയോപാർക്കും ഇരിങ്ങൽ സർഗ്ഗാലയ ക്രാഫ്റ്റ് വില്ലേജും കൂടുതൽ മുൻകരുതൽ ഒരുക്കി പൊതുജനങ്ങൾക്ക് ഉടൻ തുറന്ന് കൊടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ച് പൂട്ടിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറക്കാമെന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ദ്ദേ ഈ വർഷത്തെ നവരാത്രി ഘോഷയാത്ര കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നാളെ തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് ആരംഭിക്കാൻ തീരുമാനമായി വിഗ്രഹങ്ങൾ ശുചീന്ദ്രത്തുനിന്ന് പത്മനാഭപുരത്ത് എത്തിക്കാൻ കന്യാകുമാരി ജില്ലാ ഭരണകൂടം ഇന്ന് നടപടി എടുക്കും നാളെ പത്മനാഭപുരത്തുനിന്ന് കുഴിത്തുറയിലേക്ക് എഴുന്നള്ളത്ത് ആരംഭിക്കും ആന വെള്ളിക്കുതിര പല്ലക്കുകൾ എന്നിവ ഇത്തവണ ഒഴിവാക്കാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന നവരാത്രി ഘോഷയാത്ര നടത്തിപ്പ് യോഗം തീരുമാനിച്ചു രും കോവിഡ് വ്യാപനം നേരിടുന്നതിൽ ഭയമോ വൈമുഖ്യമോ പാടില്ലെന്ന് ഇടുക്കി രാജാക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ എം എസ് നൌഷാദ്

ഏതാനും ജയിൽ ജീവനക്കാരെ സ്ഥലം മാറ്റുക മാത്രമാണ് ഇതുവരെ സ്വീകരിച്ച നടപടിയെന്ന് ചെന്നിത്തല കത്തിൽ കുറ്റപ്പെടുത്തി രുര കോവിഡിനെത്തുടർന്ന് നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കായി സുപ്രീം കോടതി നിർദ്ദേശ പ്രകാരം നാളെ വീണ്ടും പരീക്ഷ നടത്തും വെള്ളിയാഴ്ചയാണ് ഫല പ്രഖ്യാപനം രുര സമൂഹ പ്രതിരോധ ശേഷി കൈവരിക്കുന്നതോടെ കോവിഡ് മഹാമാരി ഇല്ലാതാകുമെന്ന ആശയത്തിനെതിരെ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ഇത്തരം നിഗമനങ്ങൾ കഴമ്പില്ലാത്തതാണെന്ന് സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് ഗബ്രിയേസസ് അഥാനം മാധ്യമങ്ങളോട് പറഞ്ഞു രുര ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനം

കോവിഡ് സാഹചര്യത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നതാണ് ഇക്കൊല്ലത്തെ ദിനാചരണ സന്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വെബിനാർ വൈകിട്ട് അഡ്വക്കറ്റ് ജനറൽ രഞ്ജിത് തമ്പാൻ ഉദ്ഘാടനം ചെയ്യും

ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് ദുബായിൽ സൺറൈസേഴ്സ് ഹൈദരബാദ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും രുഭ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്രമായതിനെത്തുടർന്നാണ് സംസ്ഥാനത്ത് മഴ ശക്തമായത് രും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി വാളയാർ ഡാമുകളുടെ ഷട്ടർ ഇന്ന് തുറക്കേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

രംഭ അശ്ലീല പ്രചാരണം നടത്തിയ യൂട്യൂബറെ കൈയേറ്റം ചെയ്ത കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും

കേസിൽ ഉൾപ്പെട്ട മറ്റ് രണ്ട് പേരും ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്

ഉച്ചയ്ക്ക് മന്ത്രി എ

ഇത്തവണ മികച്ച ചിത്രം മികച്ച നടൻ നടി വിഭാഗങ്ങളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് രുമ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷന്റെ സഹായത്തോടെ വയനാട് കാരാപ്പുഴയിൽ തുടങ്ങുന്ന മത്സ്യവിത്ത് വളർത്തൽ ഫാമും പൂക്കോട് തളിപ്പുഴയിലെ തദ്ദേശീയ മത്സ്യവിത്ത് ഉല്പാദന കേന്ദ്രവും മന്ത്രി ജെ

രുഭ ജനതാദൾ എസ് സംസ്ഥാന കമ്മിറ്റി പാർട്ടി ദേശീയ അധ്യക്ഷൻ എച്ച്

മാത്യു

തോമസ് അധ്യക്ഷനായ അഡ്ഹോക് കമ്മിറ്റിക്കായിരിക്കും താൽക്കാലിക ചുമതല